ഇന്ന് കൊൽക്കത്തയിൽ എത്തും നവീക്കുളിച്ച പൈതൃക മന്ദിരങ്ങൾ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സ്മർപ്പിക്കും

ഇന്ന് പൊളിക്കും

ഖേലോ ഇന്തൃയിൽ മൂന്നു സ്വർണ്ണവുമായി ത്രിപുര മുന്നിൽ

മഹാരാഷ്ട്ര രണ്ടാം സ്ഥാനത്ത്

ഇന്നലെ മുതലാണ് നിയമം പ്രാബല്യത്തിൽ വന്നത് അയൽ രാജ്യങ്ങളിൽ മതപീഡനത്തിനിരയായി രാജ്യത്ത് അഭയം തേടിയ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പൌരത്വം നൽകാനുദ്ദേശിച്ചുള്ളതാണ് നിയമം

ലക്നൌവിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

പ്ലീപ്പിധ വികസന പദ്ധതികൾ അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും

വൈകിട്ട് രബീന്ദ്രസേതു ലൈറ്റ് ആന്റ് സൌണ്ട് ഷോയ്ക്ക് പ്രധാനമന്ത്രി തുടക്കമിടും

കപ്പൽ അറ്റക്കുറ്റപ്പണി കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവ്വഹിക്കും ചരക്ക് നീക്കം സുഗമമാക്കുന്നതിനും കപ്പലുകൾക്ക് കാലതാമസം കൂടാതെ തുറമുഖം വിടുന്നതിനും സഹായിക്കുന്ന ഉയർന്ന നിലവാരത്തിലുള്ള അടിസ്ഥാന സൌകരൃങ്ങളും ശ്രീ

ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി കഴിഞ്ഞ വർഷം റദ്ദാക്കുകയും സംസ്ഥാനത്തെ വിഭജിച്ച് രണ്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളാക്കി മാറ്റുകയും ചെയ്തിരുന്നു

മൂന്നു തവണ മുഖ്യമന്ത്രിയായിരുന്ന ഫറൂഖ് അബ്ദുള്ളയ്ക്കെതിരെയും നിയമം ബാധകമാക്കിയിട്ടുണ്ട് മകൻ ഒമർ അബ്ദുള്ള മെഹബൂബ മുഫ്തി എന്നിവരും നിയമപ്രകാരം കരുതൽ തടങ്കലിലാണ്

ഗാന്ധി നഗറിൽ ് ഗുജറാത്ത് പോലീസിന്റെ നിരവധി വികസന പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാട്ടനം ചെയ്യും

എല്ലാ വിധത്തിലുമുള്ള സൈബർ കുറ്റകൃത്യങ്ങളും സമഗ്രമായി ഏകോപിപ്പിച്ച് കൈകാര്യം ചെയ്യുകയാണ് ലക്ഷ്യം

പോർട്ടൽ മുഖേന പൊതുജനങ്ങൾക്ക് ഓൺലൈനായി സൈബർ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയും

സംഭവത്തിൽ വിശദീകരണം നൽകാൻ ഇവരോട് ആവശ്യപ്പെട്ടതായി ഡൽഹി പൊലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ ജോയ് ടിർക്കി അറിയിച്ചു അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലെ രജിസ്ട്രേഷൻ നടപടികൾ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചവരിൽ ജെ

ആക്രമണത്തിൽ ഉൾപ്പെട്ട ഭൂരിഭാഗം വിദ്യാർത്ഥികളുമെന്ന് ഡൽഹി പൊലീസ് വെളിപ്പെടുത്തലിലൂടെ വ്യക്തമായതായി കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പ്രതിഷേധങ്ങൾ അവസാനിപ്പിച്ച് ക്യാമ്പസുകളിലേക്ക് തിരികെ പോകാനും ക്സാസ് തടയരുതെന്നും അദ്ദേഹം വിദ്യാർത്ഥികളോട് അഭ്യർത്ഥിച്ചു വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്ക്റ്റും കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടു

ഉദ്യോഗസ്ഥർ പൊലീസ് ഫയർഫോഴ്സ് വിദഗ്ധർ തുടങ്ങിയവരാണ് ഇതിന് നേതൃത്വം നൽകിയത് ഫ്ളാറ്റുകൾ പൊളിക്കുന്നതിനായി കൈക്കൊണ്ടിട്ടുള്ള നടപടികളിൽ സ്ഫോടന വിദഗ്ധൻ തൃപ്തിരേഖപ്പെടുത്തി

രാവിലെ എട്ട് മുതൽ വൈകിട്ട് അഞ്ചുമണിവരെയാണ് നിരോധനാജ്ഞ

പ്രദേശങ്ങളിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്

ഫയർഫോഴ്സ് മറൈൻ പൊലീസ് ദുരന്ത നിവാരണസേന എന്നിവരുടെ സേവനവും ഉറപ്പാക്കിയിട്ടുണ്ട്

ഇന്നലെ നടന്ന മൂന്നാമത്തെയും അവസാനത്തേയും മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം

മലയാളി താരം സഞ്ജു സാംസൺ ഇന്ത്യയ്ക്കായി ഈ മിൽസരത്തിൽ കളിക്കാനിറങ്ങി

രാഷ്ട്രൂൽ ശിഖർ ധവാൻ എന്നിവരുടെ അർദ്ധ സെഞ്ചുറികളാണ് ഇന്ത്യൻ ഇ്ന്നിംഗ്ങിസിന് കരുത്ത് പകർന്നത്

ആദ്യ പന്തിൽ സിക്സർ നേടിയ സഞ്ജു സാംസൺ രണ്ടാം പന്തിൽ പുറത്താവുകയായിരുന്നു

മൂന്നു മൽസരങ്ങളുണ്ടായിരുന്ന പരമ്പരയിൽ രണ്ടെണ്ണം വിജയിച്ചാണ് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയത്

ഇൻഡോറിൽ നടന്ന രണ്ടാം മത്സരത്തിൽ ഇന്ത്യ ഏഴ് വിക്കറ്റിനാണ് വിജയിച്ചത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

രണ്ട് സ്വർണമടക്കം ഒൻപത് മെഡലുമായി മഹാരാഷ്ട്ര രണ്ടാം സ്ഥാനത്തും രണ്ട് സ്വർണമടക്കം അഞ്ച് മെഡലുമായി ഉത്തർപ്രദേശ് മൂന്നാം സ്ഥാനത്തുമാണ്

ഇന്നലെ പ്രതിനിധി സമ്മേളനം വിചാര കേന്ദ്രം ഡയറക്ടർ പി

ഇന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും

ആർ

എഫ് ബി എസ്

ടി ബി പി എസ് എസ്